കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ച് വി വി പാറ്റ് സ്തിപ്പുകൾ എണ്ണണമെന്നും ഇതിനുവരുന്ന കാലതാമസം പ്രശ്നമാക്കേണ്ടതി ല്ലെന്നും പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ ശനിയാഴ്ച സത്യവാ ങ്മൂലം നൽകിയിരുന്നു എന്നാൽ പകുതിയോളം വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയി ച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് മൂന്നു ദിവസം മാത്രം ശേഷിക്കെ സുപ്രീം കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ തീരു മാനം ഉണ്ടായേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ

് ബി ജെ പി പ്രകടന പത്രിക ഇന്ന് പ്രസിദ്ധീകരിക്കും

യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായും ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിലായിരിക്കും ബി ജെ പി സങ്കല്പ പത്രമെന്ന് വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രകാശ നം കൃഷിക്കാർക്കും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കുംഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങൾ പ്രകടനപത്രികയിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന

പ്രതി പക്ഷ പാർട്ടികൾക്കെതിരെ നടപടിയെടുക്കാൻ ഗവൺമെന്റ് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്ന പരാതിയുടെ അടിസ്ഥാന ത്തിലാണ് കമ്മീഷന്റെ നിർദ്ദേശം സംസ്ഥാനത്ത് നാമനിർദ്ദേശപത്രിക പിൻവലിക്കാവുന്ന അവസാ നദിവസം ഇന്ന് വൈകിട്ട് മൂന്നുവരെ പത്രിക പിൻവലിക്കാം

പത്രിക പിൻവലി ക്കുന്നതോടെ സംസ്ഥാനത്തെ മത്സരചിത്രത്തിന് കൂടുതൽ വ്യക്തത ലഭിക്കും

മസാല ബോണ്ടുകൾ വിറ്റു പോയത് യു ഡി എഫിന്റെ സമനില തെറ്റിച്ചിരിക്കുകയാണെന്ന് കോടിയേരി ആരോപിച്ചു

് ബി ജെ പിക്കെതിരായ മത്സരത്തിനാണ് കോൺഗ്രസ് അധ്യക്ഷൻ വയനാട്ടിലെത്തിയതെന്ന പ്രഖ്യാപനം അവരുടെ പൊള്ളത്തരം തുറന്നുകാട്ടു ന്നതാണെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി കാസർക്കോട്ട് പറഞ്ഞു

പിയായിരുന്ന ആൾ വയനാട്ടിലെത്തി ആശുപ ത്രിയും സ്കൂളും എവിടെ എന്നു ചോദിക്കുന്നത് അപഹാസ്യമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു കോൺഗ്രസ് അധ്യക്ഷൻ വയനാട്ടിൽ മത്സരിക്കുന്നതിൽ ദക്ഷിണേ ന്ത്യയിലെ ജനങ്ങൾ സന്തോഷിക്കുമ്പോൾ സി പി ഐ എം മാത്രം അതിനെ അന്ധമായി എതിർക്കുകയാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ നിരുത്തരവാദപരമായ സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് പ്രളയ ദുരന്തത്തിന്റെ ഉത്തരവാദിത്യത്തിൽ നിന്ന് ഗവൺമെന്റ് ഒളിച്ചോടുകയാ ണെന്നും അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു ഒളിക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകും മൊഴി നൽകാൻ ആവശ്യപ്പെട്ട് പൊലീസ് ഇന്നലെ വീണ്ടും നോട്ടീസ് നൽകിയ സാഹ ചരൃത്തിലാണ് ഇന്ന് രാവിലെ ഹാജരായി മൊഴി നൽകുന്നത്

ആൻണി ഇന്നും പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല നാളെയും എത്തും ജില്ലയിൽ മൂന്ന് മുന്നണികളുടെയും പ്രചാ രണം കൂടുതൽ സജീവമായി വരുംദിവസങ്ങളിൽ ദേശീയ സംസ്ഥാന നേതാ ക്കൾ പ്രചാരണത്തിൽ പങ്കെടുക്കാൻ എത്തും

നൂറോളം സൈക്കിളി സ്റ്റുകൾ രണ്ടിടത്തും പരിപാടിയിൽ പങ്കെടുത്തു

അവരെ സ്വകാര്യാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

പാക് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന നിരുത്തരവാദപരവും അപഹാ സ്യവുമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി മേഖലയിൽ യുദ്ധഭീതി ഉണ്ടാക്കാനാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മഹമൂദ് ഖുറൈഷി ശ്രമിക്കുന്നതെന്ന് വിദേശകാരൃ വക്താവ് രവീഷ്കുമാർ ന്യൂഡൽഹിയിൽ പറഞ്ഞു പാകിസ്ഥാ നിൽ പ്രവർത്തിക്കുന്ന ഭീകരസംഘടനകൾക്ക് ഇന്ത്യയെ ആക്രമിക്കാൻ ആഹ്വാനം നൽകുന്നതാണ് ഷാ മഹമൂദിന്റെ പരാമർശമെന്നും ഇന്ത്യ കുറ്റപ്പെ ടുത്തി

തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് താപനില നാലു ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാവകുപ്പ് അറിയിച്ചു

ഈ സാഹചര്യത്തിൽ സൂര്യാതപ സൂര്യാഘാത സാധ്യത ഒഴിവാക്കാൻ മുൻക രുതൽ എടുക്കണമെന്ന് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു ് കോഴിക്കോട്ടും തൃശൂരും ഇന്നലെ രണ്ടുപേർക്ക് സൂര്യാതപമേറ്റു

പാലാ തൊടുപുഴ റോഡിൽ പാലായ്ക്ക് അടുത്ത് മാനത്തൂരിൽ കാറപകടത്തിൽ അഞ്ചുപേർ മരിച്ചു മാനത്തൂർ പള്ളിക്കു സമീപം ഇന്നലെ വൈകിട്ട് ആറരയോടെ കാർ നിയന്ത്രണം വിട്ട് കടയിലും മരത്തിലും ഇടിച്ചായി രുന്നു അപകടം കടനാട് ഇരുവേലിക്കുന്നേൽ പ്രമോദ് സോമൻ കടനാട് കിഴക്കേക്കര വിഷ്ണുരാജ് കടനാട് മലേപ്പറമ്പിൽ ഉല്ലാസ് വെള്ളിലാപ്പള്ളി നടുവിലെക്കുറ്റ് ജോബിൻസ് കെ ജോർജ്ജ് അറയ്ക്കപറമ്പിൽ സുധി ജോർജ്ജ് എന്നിവരാണ് മരിച്ചത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന അന്തീനാട് മലയിൽ പ്രഭാ തിനെ ഗുരുതരമായ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശു പത്രിയിൽ പ്രവേശിപ്പിച്ചു വയനാട്ടിലേക്ക് വിനോദയാത്രയ്ക്കുപോയ സംഘം തിരികെ വരുന്നതിനിടെയായിരുന്നു അപകടം അമിതവേഗമാണ് അപകട ത്തിന് കാരണമായതെന്നാണ് നിഗമനം

വിക്കറ്റിന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ പരാജയപ്പെടുത്തി

ജയ്പൂരിൽ മറ്റൊരു മത്സരത്തിൽ കൊൽക്കത്ത എട്ട് വിക്കറ്റിന് രാജസ്ഥാൻ റോയൽസിനെ തോൽപിച്ചു

ഇന്ന് കിംഗ്സ്ഇലവൻ പഞ്ചാബ് സൺ റൈസേഴ്സ് ഹൈദരബാദിനെ നേരിടും

സന്തോഷ്ട്രോഫി ദേശീയ ഫുട്ബോൾ ടൂർണ്ണമെന്റിന് ഇന്ന് ലുധി യാനയിൽ തുടക്കമാവും ഉദ്ഘാടന മത്സരത്തിൽ ഗോവ സർവീസസിനെയും ഡൽഹി മേഘാലയയെയും നേരിടും നിലവിൽ ജേതാക്കളായ കേരളത്തിന് ഇത്തവണ ടൂർണ്ണമെന്റിൽ യോഗ്യത നേടാൻ കഴിഞ്ഞില്ല

തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് മരിച്ച ഏഴു വയസ്സുകാരന്റെ അനിയനെ വിട്ടുകൊടുക്കണമെന്ന മുത്തച്ഛന്റെ അപേക്ഷയിൽ വൈകാതെ തീരുമാനമുണ്ടായേക്കുമെന്ന് ശിശുക്ഷേമ സമിതി കേന്ദ്രങ്ങൾ അറി യിച്ചു നിലവിൽ അമ്മയുടെ കൂടെയാണ് കുട്ടി താമസിക്കുന്നത് കുട്ടികളുടെ പിതാവ് കഴിഞ്ഞവർഷം മരിച്ചശേഷം ആരോടും പറയാതെ കുട്ടികളുമായി മാതാവ് സുഹൃത്തിനൊപ്പം പോവുകയായിരുന്നു കുട്ടികളെ കേസിലെ പ്രതി അരുൺ പീഡിപ്പിച്ചപ്പോൾ അമ്മ തടയാൻ ശ്രമിച്ചില്ലെന്ന പരാതി നിലനിൽക്കു ന്നുണ്ട്

പോപ്പി സ്ട്രോ കായ്കളുമായി രണ്ടുപേർ പാലക്കാട് കെ എസ് ആർ ടി സി ബസ്സ്റ്റാന്റിന് പരിസരത്തുനിന്ന് പൊലീസ് പിടിയിലായി

രാജ്യാന്തര വിപണിയിൽ ഇതിന് അഞ്ചുകോടിയോളം രൂപ വില വരുമെന്ന് പൊലീസ് അറിയിച്ചു

ന്നാൾ വൈകീട്ട് നട തുറക്കും

വിഷുക്കണി കണ്ട് അയ്യപ്പ ദർശനം നട ത്തുന്ന ഭക്തർക്ക് തന്ത്രിയും മേൽശാന്തിയും വിഷുക്കൈനീട്ടവും നൽകും

ആലപ്പുഴയിൽ വാഹനം കഴുകുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് സഹോദരങ്ങൾ മരിച്ചു ആലപ്പുഴ എ

പ്രണയം നിരസിക്കുന്നതിന്റെ പേരിൽ പെൺകുട്ടികളോട് ക്രൂര മായി പ്രതികാരം ചെയ്യുന്ന പ്രവണത ആവർത്തിക്കാതിരിക്കാൻ നിയമവ്യവ സ്ഥകളിൽ മാറ്റം വരുത്തണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എം

ജോസഫൈൻ ആവശ്യപ്പെട്ടു തൃശൂർ ചിയ്യാരത്ത് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ വിദ്യാർത്ഥിനിയുടെ വീട് സന്ദർശിക്കാനെത്തിയതായിരുന്നു ജോസഫൈൻ

ഉത്സവാഘോഷങ്ങളിലെ ആനയെഴുന്നള്ളിപ്പും അനുബന്ധപ്രശ്ന ങ്ങളും സംബന്ധിച്ച് മറ്റന്നാൾ വകുപ്പുമന്ത്രിയുമായി ക്ഷേത്രപ്രതിനിധികൾ ചർച്ച നടത്തും ആനയെഴുന്നള്ളിപ്പ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയ്ക്ക് ഏർപ്പെടുത്തിയ വിലക്ക് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയാകും

ഇടുക്കി വട്ടവട മേഖലയിൽ കാട്ടുതീ പടർന്നതിനെ തുടർന്ന് വന്യ ജീവികൾ സമീപത്തെ തോട്ടങ്ങളിലേക്കും ജനവാസമേഖലയിലേക്കും കൂട്ട ത്തോടെ എത്തിത്തുടങ്ങി

വെള്ളിമാട്കുന്ന് ബ്രഹ്മസ്ഥാനം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷി കാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ മാതാ അമൃതാനന്ദമയി ഇന്ന് വൈകിട്ട് കോഴി ക്കോട്ട് എത്തും